പുതിയ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ഉള്ളി കയറ്റുമതിയ്ക്കുള്ള നീരോധനം സർക്കാർ പിൻവലിച്ചു

എൽ ഫുട്ബോളിൽ ബാംഗ്ലൂർ എഫ്

ജംഷഡ്പൂർ

അലുമിനിയം ക്ഷീരം വസ്ത്രനിർമാണം ഗ്ലാസ് ഉപകരണം കളിമൺ തുടങ്ങിയ പ്രാദേശിക വൃവസായങ്ങൾക്ക് ഇടനാഴി പുതിയ അവസരങ്ങൾ തുറന്നു നൽകും

രാജ്യത്ത് മെച്ചപ്പെട്ട അടിസ്ഥാന സൌകരൃങ്ങൾ ഒരുക്കുന്നതിനും ജീവിത സാഹചരൃങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നിതായും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹി മെട്രോയുടെ മജന്ത ലൈന്നിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർ രഹിത ട്രെയിൻ സർവീസിന് പച്ചക്കൊടി കാട്ടി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ചരക്ക് ഇടനാഴിക്ക് വേണ്ട ഭൂമിയേറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാനും ബന്ധപ്പെട്ട കക്ഷികളുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു റെയിൽവേയുടെ ഓരോ പദ്ധതിയുടെയും നടപടികൾ വേഗത്തിലാക്കാൻ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനും ശ്രീ ഗോയൽ നിർദ്ദേശം നൽകി

ടി നഷ്ടപരിഹാരത്തുകയുടെ ഒൻപതാമത് ഗഡുവായി ആറായിരം കോടി രൂപ കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കൈമാറി

അരുണാചൽ പ്രദേശ് മണിപ്പൂർ മിസോറാം നാഗാലാൻഡ് സിക്കിം എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് ജി

ടി വരുമാന നഷ്ടം ഉണ്ടായിട്ടില്ല

വില്ക്കയറ്റത്തെ തുടർന്ന് സെപ്റ്റംബറിലാണ് ഉള്ളി കയറ്റുമതി സർക്കാർ നിരോധിച്ചത്

കർഷകരും കേന്ദ്രവും തമ്മിൽ നടക്കുന്ന ആറാമത്തെ ചർച്ചയാണിത് കാർഷിക നിയമങ്ങൾക്കു പുറമേ മിനിമം താങ്ങുവില വായു ഗുണനിലവാരം വൈദ്യുതി ലഭ്യത തുടങ്ങിയവയും ചർച്ചാ വിഷയമാകും

ജയശങ്കർ രണ്ടു ദിവസത്തെ ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി ഖത്തർ സർക്കാരിന്റെ മുതിർന്ന നേതാക്കളുമായി വിവിധ ഉഭയകക്ഷി വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു ഖത്തറിലെ അമീറിനെ സന്ദർശിച്ച ശ്രീ ജയ്ശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം കൈമാറി

ഡെൻമാർക്കിലെ പരിസ്ഥിതി വിദ്യാഭ്യാ്സ ഫൌണ്ടേഷൻ നൽകുന്ന പരിസ്ഥിതി ലേബലാണ് ബ്ലൂ ഫ്ളാഗ് ്സർട്ടിഫിക്കേഷൻ

തീരപ്രദേശങ്ങളെ സംരക്ഷിക്കു ന്നതിനുള്ള ദേശീയ തലത്തിലുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ എട്ട് കടൽത്തീരങ്ങളിൽ നീല പതാക സ്ഥാപിച്ചു രാജ്യത്തിന്റെ അഭിമാന നിമിഷങ്ങളിൽ ഒന്നാണിതെന്ന് പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു ഇന്ത്യയുടെ പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസന ശ്രമങ്ങൾക്കുമുള്ള ആഗോള അംഗീകാരമാണ് ഇതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അദ്ദേഹത്തിന്റെ ഒരു കാറും പിടിച്ചെടുത്തിട്ടുണ്ട് വഞ്ചന തട്ടിപ്പ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മുംബൈയിലെ ഓഫീസിൽ നിന്നും ദിലീപ് ഛാബ്രിയയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്

കെ യിലുണ്ടായ വ്യാപനശേഷി കൂടിയ കോവിഡ് വകഭേദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ മാർഗ്ഗനിർദ്ദേശം പുതുവർഷ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി രോഗവ്യാപനം തടയാൻ ജാഗ്രത പുലർത്താനും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി

ആന്ധ്രപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്നലെയും ഇന്നുമായി പരീക്ഷണങ്ങൾ നടത്തുന്നത്

മുനിസിപ്പാലിറ്റികളിലും അഞ്ച് കോർപ്പറേഷനുകളിലുമാണ് എൽഡിഎഫ് സ്ഥാനാർഥികൾ വിജയിച്ചത്

ആർക്കും ഭൂരിപക്ഷമില്ലാത്തിരുന്ന മൂന്ന് നഗരസഭകളിൽ നറുക്കെടുപ്പിലൂടെയാണ് യുഡിഎിഫ് സ്ഥാനാർഥികൾ വിജയിച്ചത് പരവൂർ കോട്ടയം കളമശ്ശേരി എന്നിവിടങ്ങളിലാണ് നറുക്കെടുപ്പ് നടന്നത്

കണ്ണൂർ മട്ടന്നൂർ നഗരസഭയിലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഇവിടെ നിലവിൽ എൽഡിഎഫ് ഭരണസമിതിയാണുള്ളത്

അതേസമയം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം വ്യാപനശേഷി നിലവിലുള്ള ചികിത്സ വാക്സിൻ എന്നിവയോടുള്ള പ്രതികരണം തുടങ്ങിയവയെല്ലാം നിരീക്ഷിച്ച് വരികയാണെന്ന് ലോകാരോഗൃ സംഘടനാ മേധാവി ടെഡ്രോസ് അഥാനം പറഞ്ഞു

കൊറോണ വൈറസിന്റെ ദ്രുത വ്യാപനശേഷിയുള്ള പുതിയ വകഭേദമാണ് രാജ്യത്തെ രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനയ്ക്ക് കാരണം

ഇന്ത്യയ്ക്കു വേണ്ടി മുഹമ്മദ് സിറാജ് മൂന്നും ജഡേജ ബുംറ എന്നിവർ രണ്ടും വിക്കറ്റുകൾ വീഴ്ത്തി

എൽ ഫുട്ബോ്ളിൽ കരുത്തരായ ബാംഗ്ലൂർ എഫ്

ഈ ജയത്തോടെ ജംഷഡ്പൂർ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തി ഇന്ന് ചെന്നൈയിൻ എഫ്

മോഹൻ ബഗാനെ നേരിടും

ഹർഷ് വർദ്ധൻ ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവ്വഹിക്കും